അപ്പലേറ്റ് ട്രിബ്യൂണൽ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും

പ്ലാറ്റ്ഫോമുകളെയും വാർത്ത്യിപ്പിത്രണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലാക്കിയതായി കേന്ദ്ര സർക്കാർ

സംസ്ഥാനങ്ങളിൽ നട്ന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പു കളിലും ബിജെപിയ്ക്ക് മേൽക്കൈ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രി

സമിതി രൂപീകരിച്ചതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ

കേന്ദ്ര നിയമ മന്ത്രി പെട്രോളിയം മന്ത്രി ഒഡിഷ മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും

റ്റി വീഡിയോ പ്ലാറ്റ്ഷ്ട്രോമുകളെയും ഓൺലൈൻ മാധ്യമങ്ങ ളെയും വാർത്താ വിതരണ് മ്ന്ത്രാലയത്തിന് കീഴിലാക്കിയതായി കേന്ദ്ര സർക്കാർ ഇതു പ്ലൂക്കാരം നെറ്റ്ഫ്ലിക്സ് ഹോട്ട് സ്റ്റാർ പ്രൈം വീഡിയോ തുടങ്ങിയവ ഇനി മുതൽ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൻ കീഴിൽ ആയിരിക്കും

നിലവിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്രത്യേക നിയമമോ നിയന്ത്രണ അതോറിറ്റിയോ രാജ്യത്ത് നിലവിലില്ല എന്നാൽ അച്ചടിമാധ്യമങ്ങൾ വാർത്താചാനലുകൾ പരസൃങ്ങൾ ചലച്ചിത്രങ്ങൾ എന്നിവയുടെ ഉള്ളടക്കം വിലയിരുത്തുന്നതിനായി പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ അടക്കമുള്ള നിയന്ത്രണ അതോറിറ്റികൾ രാജ്യത്ത് നിലവിലുണ്ട്

എട്ട് സീറ്റുകൾ മറ്റുള്ളവർ സ്വന്തമാക്കി

ഡി

അതേ സമയം ബീഹാറിലെ വാൽമീകി നഗർ പാർലമെന്റ് മണ്ഡലത്തി ലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജെഡിയു സ്ഥാനാർഥി സുനിൽ കുമാർ മഹാതോ വിജയിച്ചു ജെഡിയുവിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ഇത്

ഉത്തർപ്രദേശിൽ ബിജെപി ആറ് സീറ്റുകൾ നേടിയപ്പോൾ സമാജ് വാദി പാർട്ടി ഒരു സീറ്റിൽ വിജയിച്ചു ഗുജറാത്തിൽ കോൺഗ്രസിന്റെ എട്ട് സിറ്റിംഗ് സീറ്റുകൾ ബിജെപി പിടിച്ചെടുത്തു കർണാടകയിലെ രണ്ടു സീറ്റുകളിലും തെലങ്കാനയിലെ ഒരു സീറ്റിലും ബിജെപി വിജയിച്ചു

മണിപ്പൂരിൽ അഞ്ചു സീറ്റുകളിലേക്ക് നാലും ബിജെപി നേടിയപ്പോൾ ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർഥി വിജയിച്ചു

ജനാധിപത്യം എന്താണ് ്എന്ന് ലോകത്തെ പഠിപ്പിച്ച ബിഹാർ ഇന്ന് അത് ശക്തമാക്കുന്നതെങ്ങനെയെന്നും പഠിപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ബിഹാറിലെ വലിയ വിഭാഗം ജനങ്ങൾ വികസനത്തിനായി വോട്ട് ചെയ്തതായും അത് എൻ ഡി എ യുടെ ഭരണത്തിനുള്ള അംഗീകാരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ആസിയാൻ ഇന്ത്യ തന്ത്രപ്രധാന സഹകരണത്തിലെ പുരോഗതിയും ഗതാഗതം വൃാപാര വാണിജൃ ബന്ധങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകളിലെ വളർച്ചയും ഉച്ചകോടി വിലയിരുത്തും കോവിഡാനന്തര കാലത്തെ സാമ്പത്തിക വളർച്ചാ വീണ്ടെടുപ്പ് പ്രധാനപ്പെട്ട പ്രാദേശിക അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ എന്നിവയും ഉച്ചകോടി ചർച്ച ചെയ്യും

ഇറ്റലി ഫ്രാൻസ് തുടങ്ങി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രതിദിന രോഗികളുടെ എണ്ണം ഉയർന്ന നിരക്കിലാണ്

ഒരേ വാർഡ് തുടർച്ചയായി മൂന്ന് തവണ സംവരണ സീറ്റായി നിശ്ചയിച്ച നടപടികൾക്ക്ക്തിരെ യായിരുന്നു ഹർജികൾ സമർപ്പിക്കപ്പെട്ടത് ഈ വിഷയ്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടാൽ തെരഞ്ഞെടുപ്പ് പ്ലൈകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോട്ടത്തിയെ അറിയിച്ചു

ഉൽപ്പാദനത്തിന് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ അടക്കമുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഒരു ട്രില്യൺ ഡോളറിന്റെ ഉൽപാദനം എന്ന ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാൻ സാധിക്കു മെന്ന് അദ്ദേഹം പറഞ്ഞു

രാജ്യത്തെ ക്യാപിറ്റൽസ് ഗുഡ്സ് മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളത് ആക്കുന്നതിനും ഇന്ത്യയെ ലോകത്തിന്റെ ഉൽപ്പാദന ഹബ് ആക്കി മാറ്റുന്നതിനും ഉള്ള മാർഗങ്ങൾ സമിതി വിലയിരുത്തും എന്ന് ശ്രീ പ്രകാശ് ജാവദേക്കർ അറിയിച്ചു

കളിമണ്ണ് ലോഹം മരം ചണം എന്നിവയിൽ നിർമ്മിച്ച തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളാണ് മേളയുടെ പ്രധാന ആകർഷണം ചൂരൽ മുള മൺപാത്രങ്ങൾ എന്നിവയും വിൽപ്പനയ്ക്കുകുണ്ട്

ഡൽഹി ക്യാപിറ്റൽസിന്റെ അഞ്ച് വിക്കറ്റിന് തകർത്താണ് മുംബൈ കിരീടം നിലനിർത്തിയത്

പുതിയ കരാറിനെ ചൊല്ലി അർമേനിയയിൽ നിരവധി സംഘർഷങ്ങൾ ഇന്നലെ നടന്നു

ബെനപോൽ പെട്രാപോൽ അതിർത്തിയിൽ ഇന്നലെ നടന്ന പരിപാടിയിൽ ഇരു സൈനൃങ്ങളിലെയും മു തിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു